ഓറഞ്ച് അലർട്ട് ലക്ഷദ്വീപിലും ജാഗ്രത കേരളതീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ നിരോധനം

ദേശീയ ഏകതാ ദിനമായി ആചരിക്കുന്നു രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ

മുൻ കേന്ദ്രമന്ത്രി പി

വെള്ളി

അറബിക്കടലിൽ ലക്ഷദ്വീപ് മേഖലയിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദം ശക്തി പ്രാപിച്ച് മഹാ ചുഴലിക്കാറ്റായി മാറിയതാണ് മഴയ്ക്ക് കാരണം തീര മലയോര മേഖലകളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്

പൊതുജനങ്ങൾ ബീച്ചുകളിലും കടൽത്തീർങ്ങളിലും പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്

കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റ് എല്ലാ ജില്ല്കളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളത്തെ തീരദേശ താലൂക്കുകളായ കൊച്ചി പറവൂർ കൊടുങ്ങല്ലൂർ ചാവക്കാട് എന്നിവിടങ്ങളിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് എറണാകുളം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മഴമൂലം തിരുവനന്തപുരത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചെന്ന വാർത്ത വ്യാജമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു

ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികദിനമാണ് ഏകതാദിനമായി ആചരിക്കുന്നത്

ഇതിനോടനുബന്ധിച്ച് റൺ ഫോർ യൂണിറ്റി എന്നപേരിൽ കൂട്ടയോട്ടവും നടക്കും ഗുജറാത്തിലെ കെവാഡിയയിലുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ പൂർണ്ണകായപ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും തുടർന്ന് ഗുജറാത്ത് പോലീസും കേന്ദ്ര സേനകളും നയിക്കുന്ന രാഷ്ട്രീയ ഏകതാ ദിവസ് പരേഡിന് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിക്കും കെവാഡിയയിൽ വച്ച് സിവിൽ സർവ്വീസ് പ്രൊബേഷനറി ഓഫീസർമാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും റൺ ഫോർ യൂണിറ്റിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി ഇത്തവണത്തെട്ടു

ന്യൂഡൽഹിയിലും രാഷ്ട്രീയ ഏക്താ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിലെ ധ്യാൻ ചന്ദ് സ്റ്റേഡിയത്തിൽ അൽപ്പം മുസ്പ് നടന്ന റൺ ഫോർ യൂണിറ്റി പരിപാടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു

ഏഴെണ്ണമായിരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒൻപതായി വർദ്ധിക്കുകയും ചെയ്തു

പുതുതായി രൂപീകൃതമായ ജമ്മു കശ്മീർ ലഡാക്ക് എന്നീ രണ്ടു കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരൂടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ലേയിലെ സിന്ധു സംസ്കൃത കേന്ദ്രയിൽ നടക്കുന്ന ചടങ്ങിൽ രാധാകൃഷ്ണ മാഥൂർ ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

തുടർന്ന് ശ്രീനഗറിൽ എത്തുന്ന ചീഫ് ജസ്റ്റിസ് ജമ്മുകശ്മീരിന്റെ നിയുക്ത ലഫ്റ്റനന്റ ഗവർണർ ഗിരീഷ് ചന്ദ്ര മുർമുഖിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കും സ്വാതന്ത്ര്യാനന്തരം വിവിധ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ നിർണ്ണായക പങ്കുവഹിച്ച ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി സർദാർ പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചാണ് രണ്ടു ലഫ്റ്റനന്റ് ഗവർണർമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്

പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും സ്ഫബന്ധിച്ച് വിവരം നൽകുന്ന സുപ്രധാന രേഖയാണ് എൻ എച്ച്

ആരോഗ്യമേഖലയിലെ നമ്മുടെ ലക്ഷ്യവും ഒപ്പം നേട്ടവും ന്യൂനതകളും വെളിപ്പെടുന്നതാണ് രേഖയെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു

എക്സ് മീഡിയ അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി പി

ചോദ്യം ചെയ്യുന്നതിനായി ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി കോടതി തള്ളി

ബി ഐ ചിദംബരത്തെ അറസ്റ്റ് ചെയ്തത്

മുംബൈ വിധാൻ ഭവനിൽചേർന്ന പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം എൽ എമാരുടെ യോഗത്തിൽ സംസ്ഥാന ബി ജെ

പാർട്ടിയിൽ പുതുതായി രൂപീകരിച്ച ദേശീയ് എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്

എഴുത്തുകാരനും പണ്ഡിതനുമായ ഗോവിന്ദ് മിശ്രയിൽ നിന്നും ശ്രീ ലീലാധർ ജാഗൂരി പുരസ്ക്കാരം ഏറ്റുവാങ്ങി

അതിനിടെ വാളയാർ കേസ് പുനരന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ

രാവിലെ സി ബി എസ് സി ഇന്റർ സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവ്വഹിക്കും തുടർന്ന് ഉദ്യോഗമണ്ഡലിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുന്ന അദ്ദേഹം എഫ്

ഐ എൽ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും

കമ്പനി സി ഇ

ഇത്തരം സന്ദേശങ്ങൾക്കു പണം നൽകി പിന്തുണ വാങ്ങുകയല്ല വേണ്ടതെന്ന് ഡോഴ്സി ട്വിറ്ററിൽ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ടു പറഞ്ഞു സമൂഹമാധ്യമ രംഗത്ത് ട്വിറ്ററിന്റെ കടുത്ത എതിരാളികളായ ഫേസ്ബുക്ക് രാഷ്ട്രീയ പരസ്യങ്ങൾ നിരോധിക്കില്ലെന്നു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിനു പിന്നാലെയാണു ട്ടിറ്ററിൻറെ പ്രഖ്യാപനം